ആഗോള എച്ച് ഐ വി പ്രതിരോധ സഖ്യത്തിന്റെ മന്ത്രിതല യോഗത്തെ കേന്ദ്രമന്ത്രി ഹർഷവർധൻ ഇന്ന് അഭിസംബോധന ചെയ്യും

ഇബ്രാഹിംകുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു

ഇന്നലെ രാത്രി നടന്ന ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള നിരവധി നഗരങ്ങൾ സാമ്പത്തികമാന്ദ്യത്തിന്റെ പിടിയിലാണ്

ഇതിനായി മാനസികാവസ്ഥ പ്രക്രിയകൾ രീതികൾ എന്നിവ മാറ്റേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

പെൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുന്നതിനും അവരിൽ ആത്മവിശ്വാസം ഉണർത്തി വിജയികൾ ആക്കുന്നതിനും ഉന്നതനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിനു നരേന്ദ്രമോദി സർക്കാർ എക്കാലവും മുൻഗണന നൽകിയിട്ടുണ്ടെന്നും നിരവധി പദ്ധതികൾ അതിനുവേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അഖിലേന്ത്യ സാങ്കേതിക വിദ്യാഭ്യാസ കൌൺസിൽ ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം

സി എം

ഐ വി പ്രതിരോധ സഖൃത്തിന്റെ മന്ത്രിതല യോഗം ഇന്ന് നടക്കും

എയ്ഡ്സിനെതിരായ പ്രതിരോധ നടപടികളിൽ ലോകരാഷ്ട്രങ്ങളുടെ യോജിച്ച സഹകരണം ഉറപ്പാക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം

ശ്രീമതി കമലഹാരിസിന്റെ വിജയം അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന് അഭിമാനവും പ്രചോദനവും ആണെന്നും ശ്രീ മോദി പറഞ്ഞു

കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെ ചോദ്യം ചെയ്യാനാണ് എറണാകുളം പ്രിൻസിപ്പൽ സെ ഷൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്

സി

അതേസമയം കള്ളപ്പണ്ക്കേസിൽ ബിനീഷിന്റെ ജാമൃാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും

അതിനിടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണവും പ്രചാരണവും പുരോഗമിക്കുകയാണ്

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് ചടങ്ങുകൾ നടക്കുന്നത്

ഡൽ ഹിയിൽ യമുന നദിയുടെ തീരത്തും പൊതുഘട്ടങ്ങളിലും ഛഠ് പൂജ നിരോധിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ബിജെ പി ഇന്നലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി

ന്യൂസ് ഡസ്ക് ആകാശവാണി

ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി ഫ്രാൻകോയിസ് ഫിലിപ്പെയുമായി ആശയവിനിമയം നടത്തി

എതിരെ വന്ന രണ്ടു ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു

ഇതിന്റെ ഭാഗമായി മിക്ക സ്റ്റേഷനുകളിലും വനിതാ കോൺസ്റ്റബിൾമാർടെ ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട്